ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും നാല് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും വോട്ടെണ്ണൽ വ്യാഴാഴ്ച

ഓസ്ട്രേലിയയിൽ ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസണിന്റെ ലിബറൽ നാഷണൽ സഖ്യത്തിന് ജയം

പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാരായ മനോജ് സിൻഹ രവിശങ്കർ പ്രസാദ് ഹർസിമ്രത് കൌർബാദൽ ഹർദീപ് സിംഗ്പുരി തുടങ്ങിയവർ ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നു ണ്ട്

ജെ പിയിലെ കിരൺഖേർ സണ്ണിഡിയൊൾ രവികിഷൻ എന്നിവരും കോൺഗ്രസിലെ മീരാകുമാർ ശത്രുഘ്നൻ സിൻഹ എന്നിവരും ശിരോമണി അകാലിദളിലെ സ്സുഖ്ബീർ ബാദലും ഇന്ന് ജനവിധി തേടുന്നുണ്ട് സുതാര്യവും സ്ക്യാധാനപരവുമായ വോട്ടിംഗ് ഉറപ്പാക്കാൻ വിപുലമായ ക്രമീകരണ്ണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്

കാസർകോട് മണ്ഡലത്തിലെ കുളിയോട് ജി

കണ്ണൂർ കാസർകോട് മണ്ഡലങ്ങളിലായി ആകെ ഏഴ് ബൂത്തുകളിലാണ് റീ പോളിംഗ് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് കള്ളവോട്ട് തടയുന്നതിനായി ശക്തമായ സുരക്ഷാക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു

ജെ

തൃണമൂൽ കോൺഗ്രസ്സ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം ഉണ്ടായി

തിരഞ്ഞെടുപ്പ് നിർവ്വഹണ ഉദ്യോഗസ്ഥന്റെ പിഴ വിനെ തുടർന്നാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ഇലക്ഷൻ പോളിങിന് മുന്നോടിയായി നടന്ന പരീക്ഷണ വോട്ടുകൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ ഉദ്യോഗസ്ഥൻ മറന്നുപോയതാണ് വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ തിരഞ്ഞെടുപ്പ് കാരണമായത്

ഗോവ മുഖ്യമന്ത്രിയും ബി ജെ

നാല് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും ഇതോടൊപ്പം നടക്കും വോട്ടെണ്ണ ലിന് വിപുലമായ ക്രമീകരണങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ക്കിയിരിക്കുന്നത് വോട്ടെണ്ണലിനോടനുബന്ധിച്ച് ഓൾ ഇന്ത്യ റേഡിയോയും വിപുലമായ ക്രമീകരണങ്ങളാണ് രാജ്യമെമ്പാടും ഏർപ്പെടുത്തിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളു ടെയും ലീഡ് നിലയും ഫലവും ഏറ്റവും പെട്ടെന്ന് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്

രാജ്യത്തെ മരുന്നുവില കുറച്ചുകൊണ്ടു വരുന്നതിന്റെ ഭാഗമായാണ് നടപടി

രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് പ്രധാനമന്ത്രി ഉത്തരാഖണ്ഡിൽ എത്തിയത്

പരീക്ഷ എഴുതിയ സ്കൂളിലെ അധ്യാപകൻ നിഷാദ് വി മുഹമ്മദ് പരീക്ഷാ ചുമതലയുണ്ടായിരുന്ന അധ്യാപകൻ പി

ഇതിനിടെ ഒളിവിൽ പോയ അധ്യാപകർ കോടതിയിൽ മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട്

പ്രധാനമന്ത്രി സ്കാട്ട്മോ റിസൺ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയി ച്ചു ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഒപ്പം നിൽക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പരാജയത്തെ തുടർന്ന് ലേബർ പാർട്ടി നേതാവ് ബിൽഷോർട്ടൽ സ്ഥാനം രാജിവച്ചു

ഇ യെ വേരോടെ പിഴുതെറിഞ്ഞതിന്റെ വാർഷികം ശ്രീലങ്കയിൽ വിപുലമായാണ് ആഘോഷിക്കുന്നത്

സമാധാനത്തിന്റെ ദശാബ്ദം എന്ന പ്രമേയത്തിലാണ് ആഘോഷങ്ങൾ നടക്കുന്നതെന്ന് ആർമി കമാണ്ടർ ലഫ്റ്റനന്റ് ജനറൽ മഹോഷ് സേനാനായകെ പറഞ്ഞു നാഷണൽ വാർ ഹീറോസ് ഡേ എന്ന പേരിൽ നടക്കുന്ന മുഖ്യ പരിപാടി പ്രസിഡന്റ് മൈത്രിപാല സിരിസേന ഇന്ന് ഉദ്ഘാടനം ചെയ്യും എല്ലാ പ്രമുഖ നഗരങ്ങളിലും പീസ്ട്രവാക്കും സംഘടിപ്പിക്കും

ജയിലിലെ മോശം അന്തരീക്ഷത്തിനെ തുടർന്നാണ് ഖാലിദാസിയയുടെ ആരോഗൃനില വഷളായതെന്ന് ബി

പി സ്റ്റാണ്ടിംഗ് കമ്മറ്റി അംഗം ബാമറുദ്ദീൻ സിർകാർ ധാക്കയിൽ പറഞ്ഞു ഏകാന്തതയും ശരിയായ ചികിത്സ ലഭിക്കാത്തിനാലും ഹൃദ്രോഹം ഉൾപ്പെടെയുള്ള വിവിധ അസുഖങ്ങൾ അവരെ ബാധിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു

ഖാലിദാസിയ ആവശ്യപ്പെടുന്ന ആശുപത്രിയിൽറ്റ ശരിയായി ചികിത്സിക്കുന്നതിനുള്ള നടപടി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകണമെന്നും ബി

ദക്ഷിണ കൊറിയയാണ് നിലവിലെ ചാമ്പ്യൻ

സി

ഏഷ്യൻ ജേതാവ് ബാത്തുറോവ് ബാവോ മിർസാ ഖാലിലോവ് മിറാസിസ് ബേക് എന്നിവരും ബോക്സിംഗ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്